സെക്രട്ടറിയേറ്റിന് മുന്നിൽ ബി ജെ

പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലെ ചില പരാമർശങ്ങൾ പ്രതിപ്പക്ഷത്തെ പ്രകോപിപ്പിച്ചു ശബരിമലയിൽ ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടായതിനാലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്നും പ്രതിപക്ഷ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ആർ എസ്

സംസ്ഥാന ഗവൺമെന്റാണ് ആർ എസ് എസുമായി ഒത്തുകളി നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വാക്കുതർക്കം രൂക്ഷമായതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്നവിധം കറുത്ത ബാനർ ഉയർത്തിപ്പിടിച്ചു ഭരണപക്ഷാംഗങ്ങളും നടുത്തളത്തിലേക്ക് നീങ്ങിയെങ്കിലും നേതാക്കൾ തടഞ്ഞു

ജലീലിനെതിരായ ബന്ധുനിയമന വിവാദത്തിൽ സഭയിൽ മറുപടി പറയുന്നതിൽ നിന്നും ഒളിച്ചോടുന്നതിന്റെ ഭാഗമായാണ് ഭരണപക്ഷം സഭ തടസപ്പെടുത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറി

എൻ രാധാകൃഷ്ണൻ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങി ദേശീയ ജനറൽ സെക്രട്ടറി സരോജ് പാണ്ഡെ എം പി സമരം ഉദ്ഘാടനം ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ